രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ആത്മനിർഭർ ഭാരത് പാക്കേജ് എല്ലാ വിഭാഗക്കാർക്കും ഗുണകരമായിരിക്കും ഇതിന്റെ വിശദാംശങ്ങൾ ഇന്നുമുതൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദമാക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു കർഷകർ തൊഴിലാളികൾ ഇടത്തരക്കാർ നികുതിദായകർ എന്നിവർക്കെല്ലാം പാക്കേജ് ഗുണകരമായിരിക്കും രാജ്യത്തിന്റെ ആഗോള മത്സരക്ഷമത ഉറപ്പാക്കാൻ സ്വയംപര്യാപ്തതയാണ് ഒരേയൊരു വഴി ഇതിലൂടെ ഇന്ത്യ കോവിഡിനെ മറികടക്കും വികസനോന്മുഖ സമ്പദ് വ്യവസ്ഥ ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസന സംവിധാനം ഊർജ്ജസ്വലമായ മനുഷ്യവിഭവ ശേഷി ചലനാത്മകമായ വിതരണ ശൃംഖല എന്നീ അഞ്ച് മേഖലകളിൽ സ്വയംപര്യാപ്തത കൈവരിക്കുന്നതിലൂടെ സ്വാശ്രയ ഇന്ത്യ യാഥാർത്ഥ്യമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് ഉണ്ടാക്കിയ ദുരന്തങ്ങൾ അവസരങ്ങളാക്കി മാറ്റാൻ ഇന്ത്യക്ക് കഴിയും

ദരദ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പാക്കേജിനെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരി സ്വാഗതം ചെയ്തു ചെറുകിട നാമമാത്ര ഇടത്തരം വ്യവസായ മേഖലയ്ക്ക് പാക്കേജ് ഏറെ പ്രയോജനപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷകൾക്ക് പാക്കേജ് പൂർണ്ണത നൽകുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു മന്ത്രി ഡോ

പാക്കേജിലെ മൂന്നിലൊന്ന് തുകയെങ്കിലും പണമായി ബാങ്ക് അക്കൌണ്ടുകളിലൂടെ നേരിട്ട് ജനങ്ങളിലെത്തണമെന്നും അദ്ദേഹം നിർദേശിച്ചു രുമ ജൂൺ ഒന്നിന് തന്നെ സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സ്കൂളുകൾ സാധാരണനിലയിൽ പ്രവർത്തിക്കുന്നതിനെ പറ്റി പിന്നീട് തീരുമാനമെടുക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും തീരുമാനം വൈകില്ല

മൂന്നും അഞ്ചും വർഷ എൽ

ബി

സി എ പരീക്ഷ ജൂലായ് നാലിനും നടത്തും പോളിടെക്നിക്കുകളിലെ അവസാന സെമസ്റ്റർ പരീക്ഷകൾ ജൂൺ ആദ്യവാരം നടത്താനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടിനടുത്ത പോളിടെക്നിക്കിൽ പരീക്ഷയെഴുതാൻ ക്രമീകരണം ഏർപ്പെടുത്തും

മെയ് ഏഴുമുതൽ വിദേശരാജ്യങ്ങളിൽ നിന്ന് വന്ന ഏഴു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതുകൊണ്ട് ആ വിമാനങ്ങളിൽ യാത്ര ചെയ്ത എല്ലാവരേയും പ്രത്യേക നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് സ്പെഷ്യൽ ട്രെയിനുകളിൽ എത്തുന്നവരുടെ സുരക്ഷാ പരിശോധനാ ഏകോപനത്തിന് ഡിഐജി എ

പ്രധാന റെയിൽവെ സ്റ്റേഷനുകളിൽ എസ്

എസ്

ആദ്യ കപ്പലായ ഐ

എസ്

പ്രത്യേക വാഹനങ്ങളിൽ തമിഴ്നാട്ടുകാരെ കൊണ്ടുപോയി

എസ് ജലാശ്വ മാലിദ്വീപിൽ നിന്ന് പ്രവാസികളുമായി മറ്റന്നാൾ വീണ്ടും കൊച്ചിയിലെത്തും

വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

മലപ്പുറത്ത് മൂന്ന് പേർക്കും കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം ബാധിച്ചത് ഇവരിൽ നാലുപേർ വിദേശത്തുനിന്നും ഒരാൾ ചെന്നൈയിൽ നിന്നും എത്തിയതാണ്

രുമ കുവൈത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ തിരിച്ചെത്തിയ അമ്മക്കും മകനുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

രണ്ടുപേരും മഞ്ചേരി ഗവ മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്

കുവൈറ്റിൽ നിന്ന് ഈ മാസം ഒൻപതിന് കൊച്ചിയിൽ എത്തിയ കുട്ടി അമ്മക്കൊപ്പം വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു

ഈ മാസം ഏഴിന് നെടുമ്പാശേരി വഴി എത്തിയ ഇവർ റാന്നിയിലെ ക്വോറന്റയിൻ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലായിരുന്നു രുമ കോവിഡ് ബാധിച്ച് തൃശൂർ ജില്ലക്കാരായ രണ്ടുപേർ ഗൾഫിൽ മരിച്ചു കുന്നംകുളം കടവല്ലൂർ സ്വദേശി ബാലൻ ഭാസി ദമാമിലാണ് മരിച്ചത് മുപ്പതോളം വർഷമായി ബേക്കറി സൂപ്പർവൈസറായി പ്രവർത്തിച്ചുവരികയായിരുന്നു ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് അശോക് കുമാർ എന്നയാൾ ദുബായിയിലാണ് മരിച്ചത് വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്നു

രുദ വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മലയാളികൾ എത്തി തുടങ്ങിയതോടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ പറഞ്ഞു പുതിയ സാഹചര്യത്തിൽ നിർദേശങ്ങളും നിയന്ത്രണങ്ങളും പൂർണ അർത്ഥത്തിൽ പാലിക്കാൻ കഴിയണണെന്നും പ്രവാസികൾ ക്വാറന്റൈൻ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രി നിർദേശിച്ചു രുര വാളയാർ അതിർത്തിയിൽ നിയന്ത്രണങ്ങളില്ലാത്ത ആളുകൾ കടന്നുവരുന്നതിനെ ജനപ്രതിനിധികൾ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മന്ത്രി എ

ഗവൺമെന്റിന്റെ കോവിഡ് നടപടികൾ അട്ടിമറിക്കുന്ന നീക്കങ്ങൾ അനുവദിക്കില്ല

രുമ കുടുംബശ്രീ നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം വായ്പാ പദ്ധതിയുടെ എറണാകുളം ജില്ലാതല വിതരണം മന്ത്രി വി

രുമ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ ഓഡിറ്റോറിയങ്ങൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങളാക്കിയത് ഗവൺമെന്റിന്റെ ഹൈന്ദവ വിരുദ്ധ നടപടികളുടെ തുടർച്ചയാണെന്ന് കേരളാ ക്ഷേത്ര സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ പിൻവലിച്ചാൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ഇവിടങ്ങളിൽ മനസമാധാനത്തോടെ താമസിക്കാൻ കഴിയില്ലെന്ന് സംഘടനയുടെ തൃശൂർ ജില്ലാ കമ്മറ്റി വിലയിരുത്തി